ഡോസുകൾ സൌജ്ന്യമായി ലഭ്യമാക്കിയെന്ന് കേന്ദ്രം

തമിഴ്നാട്ടിൽ എം

മുരളീധരനു നേരെ പശ്ചിമ ബംഗാളിൽ ആക്രമണം

വിവിധ സംസ്ഥാനങ്ങളിലെയും ജില്ലകളിലെയും സ്ഥിതിഗതികളും അദ്ദേഹം വിലയിരുത്തി

കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങളിൽ ആരോഗ്യ സംവിധാനങ്ങൾ വർധിപ്പിക്കുന്ന കാര്യം പ്രധാനമന്ത്രി ചർച്ച ചെയ്തു അതിനായി എല്ലാ സഹായവും മാർഗ്ഗനിർദ്ദേശങ്ങളും സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ദ്രുതഗതിയിൽ രോഗം പകരുന്നത് തടയാനുള്ള എല്ലാ നടപടികളും ചർച്ച ചെയ്ത അദ്ദേഹം പത്ത് ശതമാനത്തിൽ കൂടുതൽ രോഗസ്ഥിരീകരണ നിരക്കുള്ളതും അമ്പ്പിക്ക് ശതമാനത്തിലധികം ആശുപത്രി കിടക്കകളുള്ളതുമായ ജില്ലിക്കളുടെ സ്ഥിതി വിലയിരുത്താൻ ഒരു വിദഗ്ധനെ സ്ംസ്ഥാനങ്ങളിലേക്ക് അയച്ച നടപടിയും ചൂണ്ടിക്കാട്ടി മരുന്നുകളു്ടെ ലഭ്യത ഉറപ്പുവരുത്തിയ പ്രധാനമന്ത്രിയോട് റെംഡെസ്സീപിർ അടക്കമുള്ള മരുന്നുകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നുത് സംബന്ധിച്ച കാര്യങ്ങൾ അവലോകനത്തിൽ വിശദമാക്കി അതിനുശേഷം രാജ്യത്തെ വാക്സിനേഷൻ പ്രക്രിയയുടെ പുരോഗതി വിലയിരുത്തിയ അദ്ദേഹം അടുത്ത മാസങ്ങളിൽ വാക്സിൻ ഉൽപ്പാദനം വർധിപ്പിക്കുന്നത് സംബന്ധിച്ച രൂപരേഖയും അവലോകനം ചെയ്തു

വാക്സിൻ വിതരണം നിലയ്ക്കാതിരിക്കാൻ സംസ്ഥാനങ്ങൾ ജാഗ്രത കാട്ടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അമിത് ഷാ നിർമല സീതാരാമൻ ഹർഷ് വർധൻ പീയുഷ് ഗോയൽ മൻസുഖ് മാണ്ഡവ്യ തുടങ്ങിയവരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡസ്ക് ആകാശവാണി

കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു വിദഗ്ധ സമിതിയുടെ നിർദേശപ്രകാരമാണ് സംസ്ഥാനത്ത് ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നത്

ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം രണ്ട് കോടി പത്തു ലക്ഷം പിന്നിട്ടു

ടി

ടി ബി പി നൽകിയ സഹായം ഇറ്റാലിയൻ സ്ഥാനപതി ചടങ്ങിൽ അനുസ്മരിച്ചു

കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും രാവിലെ ചെന്നൈയിൽ രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ബൻവാരിലാൽ പുരോഹിത് സത്യവാചകം ചൊല്ലിക്കൊടുക്കും

നേരത്തെ എം എൽ എ മാരുടെ പിന്തുണ വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്ത് ശ്രീ സ്റ്റാലിൻ ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു തുടർന്ന് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാകാൻ ഗവർണർ ക്ഷണിക്കുകയായിരുന്നു ഒരു ദശാബ്ദത്തിനു ശേഷമാണ് തമിഴ്നാട്ടിൽ ഡി എം കെ അധികാരത്തിലെത്തുന്നത്

ബംഗാളിൽ തെരഞ്ഞെടുപ്പിനു ശേഷം അക്രമത്തിന് ഇരയായ ബിജെപി പ്രവർത്തകരെ സന്ദർശിക്കാൻ മേദിനിപൂരിലെ പഞ്ച്കുരിയിൽ എത്തിയതായിരുന്നു അദ്ദേഹം അക്രമികൾ മന്ത്രിയുടെ കാർ തകർത്തു നിരവധി മാധ്യമപ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു

അഴിമതിക്കേസിൽ തനിക്കെതിരെ സിബിഐ സമർപ്പിച്ച എഫ് ഐ

അപേക്ഷ കേൾക്കുന്നത് നീട്ടിവച്ച കോടതി മറുപടി സമർപ്പിക്കാൻ സി ബി

അടിയന്തര ആവശ്യമുണ്ടെങ്കിൽ അവധിക്കാല ബെഞ്ചിനെ സമീപിക്കാമെന്നും കോടതി ദേശ്മുഖിനെ അറിയിച്ചു

പാലരുവി വേണാട് കണ്ണൂർ ജനശതാബ്ദി വഞ്ചിനാട് ചെന്നൈ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ചെന്നൈ തിരുവനന്തപുരം പ്രതിവാര ട്രെയിൻ അന്ത്യോദയ ഏറനാട് ബംഗളൂരു ഇന്റർസിറ്റി ബാനസവാടി എറണാകുളം മംഗലാപുരം തിരുവനന്തപുരം നിസാമുദീൻ തിരുവനന്തപുരം പ്രതിവാര ട്രെയിൻ തുടങ്ങിയവയാണ് റദ്ദാക്കിയത്

ഡി പോർട്ടലിലൂടെ മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കു ഇതിനായുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്ക്ക്ാൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണപ്രദേശങ്ങളിലെയും ്ആരോഗ്യ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി

ലൈസൻസില്ലാതെ യുറേനിയം കൈവശം വയ്ക്കുന്നത് ശിക്ഷാർഹമാണെന്നും ഇവരിൽ നിന്ന് കണ്ടെത്തിയത് അപകടസാധൃത കുറഞ്ഞതാണെന്നും അധികൃതർ അറിയിച്ചു

രോഗവ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പിന്റെ കോൾസെന്റർ പുനരാരംഭിച്ചത്

വെള്ളിയാഴ്ച മുതൽ ഇ സഞ്ജീവനി വഴിയുള്ള കോവിഡ് ഒ

കോവിഡ് ഒ പി സേവനം കൂടാതെ രാവിലെ എട്ട് മണിമുതൽ രാത്രി എട്ട് മണിവരെ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉൾപ്പെടെയുള്ളവ ലഭ്യമാകും

ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് വിനോദസഞ്ചാര മന്ത്രി പെട്രോളിയം സെക്രട്ടറി മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സാന്നിധൃത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്

ഇന്ത്യൻ ഓയിൽ ബിപിസിഎൽ ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികളും പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രസഹകരിച്ചാണ് വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരീക്കുന്നത്

ഇരുപാദങ്ങളിലുമായി സ്പാനിഷ് വമ്പൻമാരായ റയൽ മാഡ്രിഡിനെ കീഴടക്കിയാണ് ചെൽസി ഫൈനലിൽ എത്തിയത് ഫ്രഞ്ച് ലീഗിൽ നിന്നുള്ള പി എസ് ജിയെ തോൽപ്പിച്ചാണ് മാഞ്ചസ്റ്റർ സിറ്റി കലാശപ്പോരിന് അർഹത നേടിയത്